രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും കാർഗിലിലെ ധീര രക്തസാക്ഷികൾക്ക് ആദരം അർപ്പിച്ചു ത കാർഗിൽ യുദ്ധ സ്മരണകൾ രാജ്യത്തിന് ഒരിക്കലും മറക്കാനാവില്ലെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത കോവിഡിനെതിരായ പോരാട്ടം ഒരേ മനസ്സോടെയാണ് ഇന്ത്യൻ ജനത നയിക്കുന്നതെന്നും പ്രധാനമന്ത്രി ത സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ച മൂന്നു പേർ കൂടി മരിച്ചതായി റിപ്പോർട്ട് ത വന്ദേഭാരത് മിഷൻ അഞ്ചാംഘട്ടം ഓഗസ്റ്റ് ഒന്നിന് ആരംഭിക്കും

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാർഗിലിൽ ജീവൻ ത്യജിച്ച സൈനികർക്ക് ആദരമർപ്പിച്ചു കാർഗിൽ വിജയ് ദിവസ് സൈന്യത്തിന്റെ നിർഭയത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും അസാമാന്യ വീര്യത്തിന്റെയും പ്രതീകമാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു

സൈനികരോടും കുടുംബങ്ങളോടും രാജ്യം നന്ദി പ്രകടിപ്പിക്കുന്നതായി അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും സ്വന്തം ജീവൻ ബലി അർപ്പിച്ചവരാണ് സൈനികരെന്ന് ഉപരാഷ്ട്രപതി എം

ഇവരുടെ രാജ്യ സ്നേഹത്തിനും ധീരതയ്ക്കും രാജ്യം എല്ലായ്പോഴും കടപ്പെട്ടിരിക്കുമെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു

ഇന്ത്യൻ സായുധ സേനയുടെ അസാമാന്യ ധൈര്യവും നിശ്ചയ ദാർഢ്യവും ഓർമ്മിപ്പിക്കുന്നതാണ് കാർഗിൽ വിജയ് ദിവസമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ രാജ്നാഥ് സിംഗ് പ്രകാശ് ജാവ്ദേക്കർ തുടങ്ങിയ നേതാക്കളും ധീരരായ സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിൽ ആദരാഞ്ജലി അർപ്പിച്ചു

ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ധീര രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചു

രുഭ കാർഗിൽ യുദ്ധ സ്മരണകൾ രാജ്യത്തിന് ഒരിക്കലും മറക്കാനാവില്ലെന്നും പാക്കിസ്ഥാന്റെ ദുസ്സാഹസത്തെ ചെറുത്ത് തോൽപ്പിച്ച ഇന്ത്യയുടെ ശക്തി ലോകം തിരിച്ചറിഞ്ഞെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ആഭ്യന്തര പ്രശ്നങ്ങൾ മറി കടക്കാൻ ഇന്ത്യയിലേക്ക് കടന്നു കയറ്റം നടത്തിയ പാക്കിസ്ഥാന് ഇന്ത്യ തക്ക മറുപടി നൽകിയെന്ന് പ്രതിമാസ മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി

രാജ്യത്തിന്റെ അതിർത്തി കാക്കാൻ സൈന്യത്തോടൊപ്പം രാഷ്ട്രത്തിന്റെ മനസ്സും ഒറ്റക്കെട്ടായി കാർഗിലിൽ അണിനിരക്കുകയായിരുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എല്ലാത്തിലും വലുത് രാഷ്ട്രമാണെന്ന മന്ത്രത്തോടെയായിരുന്നു ജനങ്ങൾ സൈന്യത്തിന് നൽകിയ പിന്തുണ രുമ കോവിഡിനെതിരായ പോരാട്ടവും ഒരേ മനസ്സോടെയാണ് ഇന്ത്യൻ ജനത നടത്തുന്നത് ഇന്ത്യയിലെ രോഗമുക്തി നിരക്ക് മറ്റേതൊരു രാജ്യത്തേക്കാളും മികച്ച തോതിലാണ് മഹാമാരിയിൽ ജീവൻ പൊലിയുന്നവരുടെ എണ്ണവും ഇന്ത്യയിൽ ഏറ്റവും കുറവാണ്

നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കാൻ വൈമുഖ്യം കാണിക്കുന്നവർ ആരോഗ്യ പ്രവർത്തകരുടെ കഷ്ടപ്പാട് കാണണം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ കോവിഡ് മഹാമാരിയിൽ നിന്ന് മോചനം നേടുമെന്ന് രാജ്യത്തെ യുവജനങ്ങളും പൊതു സമൂഹവും പ്രതിജ്ഞയെടുക്കണം അതോടൊപ്പം സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകാനും തയ്യാറാവണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു ദരര സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ച മൂന്നു പേർ കൂടി മരിച്ചതായി റിപ്പോർട്ട് കാസർകോട് ആര്യക്കാടി സ്വദേശി അബ്ദുൾ റഹ്മാൻ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലും ഇരിങ്ങാലക്കുട സ്വദേശി വർഗീസ് തൃശൂർ മെഡിക്കൽ കോളേജിലുമാണ് മരിച്ചത് മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി കുഞ്ഞിമോൻ എന്ന അബ്ദുൾ ഖാദിർ ഹാജി രാവിലെ മഞ്ചേരി ആശുപത്രിയിലാണ് മരിച്ചത്

രുമ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം മരിച്ച സ്ത്രീയുടെ സ്രവ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചു കരിക്കാംകുളം സ്വദേശി ഷാഹിദയുടെ മരണത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്

കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ച ഇവരുടെ അമ്മ റുഖിയാബിയുടെ പരിശോധനാ ഫലവും പോസിറ്റീവായിരുന്നു രുമ ആലപ്പുഴ ജില്ലയിൽ കോവിഡ് രോഗ മുക്തി നേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്

വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും കെ ഒ ശശിധരൻ നൽകുന്ന റിപ്പോർട്ട്

സമ്പർക്ക വ്യാപനം കൂടുന്നതിന്റെ ഭാഗമായാണ് ഞായറാഴ്ചകളിൽ ജില്ലയിൽ സമ്പൂർണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് രുര നിരവധി രാജ്യങ്ങൾ ലോക്ഡൌണിൽ ഇളവ് വരുത്തുന്നതിനാൽ കോവിഡ് കേസുകളിൽ ലോകത്ത് ദിനം പ്രതി റെക്കോർഡ് വർദ്ധനയാണ് ഉണ്ടാകുന്നതെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി

വിദേശങ്ങളിൽ ഒറ്റപ്പെട്ട ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്ന മിഷന്റെ അഞ്ചാം ഘട്ടം ഒരുമാസം നീളുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു രുമ അന്താരാഷ്ട്ര കൊച്ചി വിമാനത്താവളത്തിൽ പ്രവാസികളുമായി ഇന്ന് എട്ട് വിമാനങ്ങൾ എത്തിച്ചേരും

ഗൾഫിനു പുറമെ ദക്ഷിണാഫ്രിക്ക എത്യോപ്യ സിംഗപ്പൂർ എന്നിവിടങ്ങളിൽനിന്നും വരുന്ന സർവീസുകളും ഇതിൽപ്പെടുന്നു രുമ തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ ധാർമ്മികത ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജി വെയ്ക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാൻ ഗവൺമെന്റ് തയ്യാറുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു തെളിവുകൾ നശിപ്പിക്കാനാണ് ഭരണകൂടവും പൊലീസും ശ്രമിക്കുന്നതെന്നും ജനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ അവിശ്വാസം നൽകി കഴിഞ്ഞതായും ചെന്നിത്തല സ്വകാര്യ വാർത്താ ചാനലിനോട് പറഞ്ഞു

കുട്ടിക്ക് ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടായതിനെത്തുടർന്ന് നടത്തിയ വൈദ്യപരിശോധനയിലാണ് ക്രൂരത പുറംലോകം അറിഞ്ഞത്

കോവിഡ് സാഹചര്യത്തിലാണ് യോഗം മാറ്റിയതെന്ന് കൺവീനർ എ വിജയ രാഘവൻ അറിയിച്ചു രേര കാർഗിൽ വിജയ് ദിവസ് ആചരണത്തിന്റെ ഭാഗമായി പൂർവ്വ സൈനിക സേവ പരിഷത് കണ്ണൂരിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവർക്ക് ചടങ്ങിൽ ആദരാഞ്ജലി അർപ്പിച്ചു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു പരിപാടി രെ തിരുവനന്തപുരം സ്വർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം

തീരദേശത്തു താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദേശമുണ്ട്